ഉഭയകക്ഷി വൃാപാരം മെച്ചപ്പെടുത്തുന്ന ഇന്തൃയും സിംഗപ്പൂരും തമ്മിലുളള സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഭേദഗതി ഒപ്പുവെച്ചു

ഇന്ന് തിരുവോണം

ഇന്ന് തുടക്കം

എ യംതോങ് ഹവോക്കിപ്പ് ദേശവിരുദ്ധ സംഘടനയായ കുക്കി റെവല്യൂഷണറി ആർമി ചെയർമാൻ് ഡേവിഡ് ഹാങ്ഷിങ് എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി ഇംഫാലിൽ അറസ്റ്റ് ചെയ്തു

പോലീസ് പിസ്റ്റലുകൾ മോഷ്ടിച്ചെടുത്ത് അത് നിയമവിരുദ്ധമായി വിവിധ തീവ്രവാദ സംഘടനകൾക്ക് വിതരണം ചെയ്തതാണ് യംതോങ് ഹവോക്കിപ്പിനെതിരായ കേസ്

രാജ്യത്തിനെതിരെ യുദ്ധത്തിന് ശ്രമിക്കുകയും ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഡേവിഡ് ഹാങ്ഷിങിനെതിരായ കേസ് പതിനാല് ആയുധങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്

ഡയറക്ടർ ജനറൽ ആർ

നക്സലിസം അമർച്ച ചെയ്യുന്നതിൽ സേന നല്ല മുന്നേറ്റമാണ് നേടിയത് നക്സലുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിൽ വൻതോതിൽ തിരിച്ചടി നൽകാൻ കഴിഞ്ഞു ഇതുവഴി ദുരിതം അനുഭവിച്ചിരുന്ന ജനങ്ങളിലേക്ക് സി

ജമ്മു കാശ്മീർ പോലീസുമായും ആർമിയുമായും മറ്റ് ഏജൻസികളുമായും സി

തന്റെ ആശയങ്ങൾ ഇന്ത്യയിലും വിദേശത്തുള്ളവരുമായി പ്രധാനമന്ത്രി പങ്കുവയ്ക്കും

രാത്രി എട്ട് മണിക്ക് പ്രാദേശിക ഭാഷ പതിപ്പിന്റെ പുനഃപ്രക്ഷേപണവും കേൾക്കാം

അക്കാദമിക രംഗത്തുള്ളവർ പ്രശസ്തരായ വിദഗ്ധർ സംരംഭകർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുൾപ്പെട്ട ഇന്ത്യൻ വംശജരും ഇന്ത്യയിൽ നിന്നുള്ളവരുമാണ് സമിതിയംഗങ്ങൾ ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തങ്ങളുടെ ചർച്ചകളുടെ സംക്ഷിപ്തരൂപം അവർ പ്രധാനമന്ത്രിക്ക് കൈമാറി പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു നയരൂപീകരണത്തിൽ വിദഗ്ദ്ധ ചർച്ചാഫലങ്ങൾ ഉൾപ്പെടുത്താനായി ഇവ വിദേശകാര്യ ഊർജ്ജമന്ത്രാലയങ്ങൾക്ക് കൈമാറുകയും ചെയ്തു

പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറുന്ന കേരളീയർക്ക് ഈ ഓണം ഒരു പുതിയ തുടക്കം കുറിയ്ക്കട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു ഇത്തവണത്തെ ഓണം ജനങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രളയക്കെടുതിയിൽ നിന്നും തങ്ങളുടെ മനക്കരുത്തും ഉൽപ്പതിഷ്ണുതയും കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനാരംഭിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും നൽകട്ടെയെന്നും തന്റെ ആശംസാ സന്ദേശത്തിൽ ശ്രീ കോവിന്ദ് പറഞ്ഞു

ഗ്രാമീണ ആരോഗ്യം സാനിട്ടേഷൻ പോഷകാഹാര മേഖലകളിലാണ് തുക ചെലവഴിക്കുക

സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെത്തുടർന്നാണ് ഈ തുക അനുവദിച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു

ദഹോദ് ജില്ലയിലെ ദദേല ഗ്രാമത്തിൽ നടക്കുന്ന മേളയിൽ രണ്ടായിരത്തോളം ജനങ്ങൾക്ക് ്സേവനം ലഭ്യമാകും കന്നുകാലികൾക്ക് ഇവിടെ വാക്സിനേഷനും സൌകര്യമൊരുക്കിയിട്ടുണ്ട്

ഇന്നലെ ന്യൂഡൽഹിയിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം ജോയിന്റ് ജോയിന്റ് ന സെക്രട്ടറി രജനീഷും സിംഗപ്പൂർ ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായി മന്ത്രാലയം സിനിയർ ഡയറക്ടർ ഫ്രാൻസിസ് ചോംങുമാണ് രണ്ടാം പ്രോട്ടോക്കോളിൽ ഒപ്പു വച്ചത് നികുതിയിളവുകൾ വിസ്തൃതമാക്കുക ഉത്പന്നങ്ങളുടെ ഉറവിടവുമായിബന്ധപ്പെട്ട നിയമങ്ങൾ ഉദാരമാക്കുക ഉത്പന്ന സവിശേഷ നിയമങ്ങൾ യുക്തിസഹമാക്കുക ഉൾപ്പെടെയുളള കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്

ഇസ്ലാമാബാദിൽ മാധ്യമ പ്രവർത്തകരോടു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇപ്പോൾ നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ ഒഴിവാക്കി ഇന്ത്യയുമായി ചർച്ചയിലേർപ്പെടാൻ തങ്ങൾക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി

എന്നാൽ ഭീകരവാദവും സന്ധിസംഭാഷണങ്ങളും ഒന്നിച്ച് പോകില്ലെന്നതിനാൽ ഇസ്ലാമബാദുമായി ചർച്ചയ്ക്ക് തയ്യാറാകില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്

മുംബൈയ്ക്കടുത്ത് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്സിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുംബൈ പോർട്ട് മേഖലയിൽ ആയിരം കോടി രൂപ ചെലവിൽ മന്ത്രാലയം ക്രൂയിസ് ടെർമിനൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു

പ്രസ്മാർ ഭാരതി സി ഇ ഒ ശശി ശേഖർ വെമ്പട്ടിയും മിസ്സിമ മീഡിയാ ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫും തമ്മിൽ ന്യൂഡൽഹിയിലാണ് കരാറിൽ ഒപ്പിട്ടത് പ്രക്ഷേപണത്തിലുള്ള പരസ്പര സഹകരണവും വാർത്ത്കളുടെ കൈമാറ്റവും കൂടാതെ സംസ്ക്കാരം വിനോദം വിദ്യാഭ്യാസം ശാസ്ത്രം കായികം തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള പരിപാടികളും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനും കരാറിൽ വ്യവസ്ഥയുണ്ട്

ഐ

കിട്ടാക്കടം കൈകാര്യം ചെയ്യുന്നതിനായി ആദ്യ കാർട്ടറിൽ തുക വകയിരുത്തൽ നടത്തിയതിനാൽ നിലവിലെ കാർട്ടറിൽ ബാങ്ക് ലാഭത്തിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു

സൌജന്യമായാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്

ഇന്ന് അത്ലറ്റിക്സിന് തുടക്കമാകും പുരുഷന്മാരുടെ മാരത്തണോടുകൂടിയാണ് ്മത്സരങ്ങൾ ആരംഭിക്കുക

കൂടകിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചശേഷം മടിക്കേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീമതി സീതാരാമൻ